ഇതിന് അനുകൂലമായ സാഹചര്യം ഇന്ത്യയിലു ണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

പല മേഖലകളിലെയും പ്രശ്നങ്ങൾക്ക് ലളിതമായ പരിഹാരങ്ങളുണ്ടാക്കാൻ നൂതന സംരംഭകർക്കും സംവിധാനങ്ങൾക്കും കഴിഞ്ഞതായി അദ്ദേഹം അഭിപ്രായ പ്പെട്ടു ചെന്നൈയിൽ മദ്രാസ് ഐ ഐ

മത്സര വിജയി കൾക്ക് പ്രധാനമന്ത്രി സമ്മാനങ്ങൾ കൈമാറും

ജസ്റ്റിസ് അരുൺ മിശ്രയും എസ് രവീന്ദ്രഭട്ടും ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഉത്തരവ്

നടത്തിയ ചർച്ചയിലാണ് സ്വയം ഒഴിഞ്ഞു പോകാമെന്ന് ഫ്ളാറ്റുടമകൾ അറിയിച്ചത്

ഫ്ളാറ്റുകൾ പൊളിക്കുന്നതു സംബ ന്ധിച്ച നീക്കങ്ങൾ നഗരസഭാ കൌൺസിലിനെ അറിയിക്കു ന്നില്ലെന്ന പരാതിയെ തുടർന്ന് സബ്കലക്ടറുടെ അധ്യക്ഷ തയിൽ മരട് നഗരസഭാ കൌൺസിലിന്റെ സ്റ്റിയറിംഗ് കമ്മറ്റി യോഗവും ചേർന്നു

കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും ശനി ഞായർ ദിവസങ്ങൾ അവധിയായതി നാൽ പത്രികാസമർപ്പണം ഉണ്ടായിരുന്നില്ല നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും ഒക്ടോബർ മൂന്ന് വരെ പത്രിക പിൻവലിക്കാം

ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കോന്നിയിൽ യുഡി എഫിന്റെ കൺവൻഷൻ ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർക്കു പുറമെ അടൂർ പ്രകാശും കൺവൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ സ്ഥാനാർത്ഥി തീരുമാനത്തിൽ പ്രതിഷേധിച്ച അടൂർപ്രകാശിനെ സംസ്ഥാന നേതാക്കൾ അനുനയിപ്പിച്ച് യോഗത്തിൽ എത്തിക്കുക യായിരുന്നു

ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഈ സമയത്ത് തുറസ്സായ സ്ഥലങ്ങളിലും ടെറസുകളിലും നിൽക്കരുതെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു പ്രളയ ദുരിതാശാസ ധനസഹായം രണ്ട് ആഴ്ചക്കകം നൽകണമെന്ന് ഹൈക്കോടതി സംസ്ഥാന ഗവൺമെന്റിന് കർശന നിർദ്ദേശം നൽകി

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി എ സമ്പത്ത് ബിഹാർ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും പ്രളയക്കെടുതി രൂക്ഷമായ യു പിയിലെയും ബിഹാറിലെയും അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്

സമരപന്തലി ലെത്തുന്ന രാഹുൽ ഗാന്ധി ഉപവാസത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും സമരം ഇന്ന് ആറാം ദിവസത്തേക്ക് കടന്നു പ്രശ്നം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച ചെയ്യാൻ വയനാട്ടിൽ നിന്ന് സർവ്വകക്ഷി സംഘം ഡൽഹി യിലെത്തിയിട്ടുണ്ട് അവർ ്രാഹുൽഗാന്ധിയുമായും കൂടി ക്കാഴ്ച നടത്തും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹിയിലെത്തി സർവകക്ഷി സംഘത്തോടൊപ്പം ജാവ് ദേക്കറെ നേരിൽ കാണും

ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിലെ വനൃമൃഗങ്ങൾക്ക് ഭീഷ ണിയാണെന്ന വസ്തുത മുൻനിർത്തി കർണ്ണാടക ഹൈക്കോ ടതിയാണ് ദേശീയപാതയിലെ രാത്രിയാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഇതിനെതിരെ സംസ്ഥാന ഗവൺമെന്റും ദേശീയപാതാ റെയിൽവെ കർമ്മസമിതിയും നൽകിയ പ്രത്യേകാനുമതി ഹർജി സുപ്രീംകോടതിയുടെ പരിഗണന യിലാണ് അതിനിടെ യാത്രാനിരോധന നീക്കം ഉപേക്ഷിക്കണമെ ന്നാവശ്യപ്പെട്ട് ബത്തേരിയിൽ കർഷകർ പ്രതിഷേധ ലോംഗ് മാർച്ച് സംഘടിപ്പിച്ചു സമരപന്തലിൽ നിന്ന് സംസ്ഥാന അതിർത്തിയിലേക്കായിരുന്നു മാർച്ച്

ജസ്റ്റിസ് എം

രമണയുടെ നേതൃത്വത്തിൽ രൂപീ കരിച്ച അഞ്ച് അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്

ഗാസിയാബാദ് മുതൽ ഹാപുർ വരെയുള്ള പാതയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്

ഡൽഹി മീററ്റ് പാത നാല് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുന്നത്

ഇടുക്കി മുരിക്കാശ്ശേരി പാവനാത്മ കോളജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ പവർലിഫ്റ്റിങ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും മന്ത്രി സി രവീന്ദ്രനാഥ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

മലങ്കര സഭാ തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗം നൽകിയ കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും സംസ്ഥാന പൊലീസിനുമെതിരെയുള്ള ഹർജിയാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബഞ്ച് പരിഗണിക്കുന്നത് സഭയ്ക്ക് കീഴിലുള്ള പള്ളികളുടെ ഉടമസ്ഥത ഓർത്തഡോക്സ് വിഭാഗത്തിനാണെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഗവൺമെന്റ് സഹായിക്കുന്നില്ലെന്ന് കാട്ടിയാണ് ഹർജി

എഞ്ചിനിലേക്ക് തീ പടർന്നുവെന്ന സംശയത്തെ തുടർന്നാണ് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ തിരിച്ചിറ ക്കിയത് ജീവനക്കാരെയും യാത്രക്കാരെയും സുരക്ഷിതമായി മാറ്റിയതായും അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭി ച്ചതായും അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിക്കാൻ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനി ക്കും

കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യം പരിഗണിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിന് പരിഗണന ഉറപ്പു വരുത്തുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അറിയിച്ചു കരിപ്പൂരിന് അനുവദിച്ച എംബാർക്കേഷൻ പോയന്റ് നിലനിർത്താൻ എല്ലാ ശ്രമവും തുടരുമെന്ന് അദ്ദേഹം ഹജ്ജ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞു

മുതിർന്ന പൌരൻമാരുടെ ക്ഷേമവും അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് സംസ്ഥാനത്തു ടനീളം വയോജന ദിനമാഘോഷിക്കുന്നത്

ലലലലലല ദേവികുളം താലൂക്കിലെ അടിമാലിക്കടുത്ത് കുറത്തിക്കുടി ആദിവാസിമേഖലയിൽ ശൈശവ വിവാഹം നടന്നെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി

നെടുങ്കണ്ടം രാജ്കുമാറിന്റെ കസ്റ്റഡി മരണ കേസിലെ ഒന്നാം പ്രതി എസ് ഐ സാബുവിന്റെ ജാമൃം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും

ചൂട്ടാട് ബീച്ചിനടുത്ത് കരയ്ക്കടിഞ്ഞ നിലയിലായിരുന്നു മൃത ദേഹം മദ്രസയിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ കല്യാശ്ശേരിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സാബിത്താണ് മരിച്ചത്

കഴിഞ്ഞ ഒരാഴ്ചയായി ആലപ്പുഴ ജില്ലയിലെ എട്ട് പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം ഉണ്ടായി രുന്നില്ല